ജമ്മുകാശ്മീരില്ലെ അഖ്നൂർ മേഖലയിൽ വീണ്ടും പാകിസ്താന്റെ വെടിനിറുത്തൽ ലംഘനം

തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ജമ്മുകാശ്മീരിൽ

രാജ്യത്തെ ഏത് ഭീഷണിയിൽ നിന്നും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവരാണ് ഇന്ത്യൻ വ്യോമസേന പോരാളികൾ ലോകത്തിൽ തന്നെ മികച്ച സേനയാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പാകിസ്ഥാനിലെ പ്രത്യാക്രമണത്തിന് ശേഷം തെളിഞ്ഞതായും രാഷ്ട്രപതിപ്പുപ്പു

അതിവേഗം വളരുന്ന രാജ്യമായ ഇന്ത്യയുടെ സംരക്ഷണത്തിന് ഇവിടുത്തെ സേനയ്ക്ക് പൂർണമായും പ്രാപ്തിയുണ്ടെന്നും ശ്രീ

നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി വ്യോമസേനയെ ആധുനീക വൽക്കരിച്ചുവരികയാണ് പ്രതിരോധ രംഗത്തിന് പുറമെ ആതുര മേഖലയിലും വ്യോമസേന നിസ്തുല സേവനമാണ് കാഴ്ചവെയ്ക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു

തുടർന്ന് ആശുപത്രി സന്ദർശിച്ച അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവ്വഹിക്കും

അഹമ്മദാബാദ് മേഖലയിൽ നിർമ്മിച്ച നിരവധി ആശുപത്രികളുടെ ഉദ്ഘാട്ടിയും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

അഖ്നൂർ മേഖലയിലാണ് നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ മോർട്ടാർ ഷെല്ലുകൾ പ്രയോഗിച്ചതെന്ന് സൈനിക വക്താവ് പറഞ്ഞു

ഇന്ത്യൻസേന ശക്തമായി തിരിച്ചടിച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടില്ല

ഇന്നലെ ഡൽഹിയിൽ നിന്ന് അട്ടാരിയിലേക്ക് ഇന്ത്യ ട്രെയിൻ സർവ്വീസ് പുനരാരംഭിച്ചിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതിനെ തുടർന്നാണ് സംജോത എക്സ്പ്രസ് ട്രെയിൻ സർവ്വീസ് നിർത്തിവച്ചത്

പ്രതിപക്ഷത്തിന്റെ പാപ്പരത്തമാണ് ഈ നിലപാടിലൂടെ വെളിവാകുന്നത് പാക് അധിനിവേശ കശ്മീരിൽ മാത്രമല്ല പാക്കിസ്ഥാനിലും ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെന്ന് അവിടുത്തെ ലേറെ തീവ്രവാദികൾ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പിൽ ആക്രമണത്തിന് ശേഷം ആരും തന്നെ അവശേഷിച്ചിട്ടില്ലെന്നും ശ്രീ ജാവ്ദേക്കർ മുംബൈയിലെ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞു

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസമേ നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് ഈ ആവശ്യാ ഉന്നയിച്ചത് പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ആഗോള സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്നുവെന്നും ബ്രിട്ടൺ ചൂണ്ടിക്കാട്ടി

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ധൃന്മൂന്തി അരുൺ ജയ്റ്റിലി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സ്റീത്രാരാ്മൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു

മേഖലകളിലെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് റൈസിങ് സ്റ്റാർ കോർപ്പ്സ് ജനറൽ ഓഫീസർ കമാൻഡിങ് ലഫ് ജനറൽ ജെ

നയിൻ കരസേനാ മേധാവിക്ക് വിശദീകരണം നൽകി

ലോക്സഭയിൽ പാസായെങ്കിലും രാജ്യസഭയിൽ പാസ്സാക്കാൻ കഴിയാത്തതിനാൽ ബിൽ നിയമമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് ഓർഡിനൻസ്പുനർവിളംബരം ചെയ്തത്

കാശിവിശ്വനാഥ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ ശിവക്ഷേത്രങ്ങളിലും ദർശ്വന്ത്രിന് പുലർച്ചെ മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയിൽ ശിവരാത്രി ദിനമായ ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തർ സ്നാന കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു

പ്രയാഗ്രാജിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ സുരക്ഷ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

നേപ്പാളിലെ കാണമണ്ഡു പശുപതിനാഥ് ക്ഷേത്രത്തിലും പ്രത്യേക ശിവരാത്രി പൂജകൾ നടക്കുകയാണ് ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നുമായി ഒരു ദശലക്ഷത്തോളം ഭക്തർ മഹാശിവരാത്രി ദർശനത്തിനായി ഇവിടെ എത്തുമെന്ന് ശ്രീലങ്കയിലും തമിഴ് ഹിന്ദു വിശ്വാസികൾ കരുതുന്നു

അതേസമയം കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷങ്ങൾ ഇന്ന് പുലർച്ചെ ആരംഭിച്ചു

തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ശംഖുമുഖം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലും പതിനായിരങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തും ശിവരാത്രിയോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതീയർക്ക് ആശംസകൾ നേർന്നു ന്യൂസ്ഡെസ്ക് ആകാശവാണി

മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സന്ദർശന സംഘം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തും

കഴിഞ്ഞ വർഷം നവംബറിലാണ് ഗവർണ്ണർ സത്യപാൽ മാലിക് നിയമസഭ പിരിച്ചുവിട്ടത്

മീ ദൈർഘൃമുള്ള ഇന്തൃയുടെ പ്രഥമ മോണോ റെയിൽ സംവിധാനം പ്രവർത്തനസജ്ജമാകും

എ ഉമേഷ് ജാദവ് നിയമസഭാ അംഗത്വം രാജിവച്ചു ക്ർണാടകയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയായ് അദ്ദേഹം ചിഞ്ചോളി മണ്ഡലത്തെയാണ് പ്രതിനിധ്രീകരിക്കുന്നത്

വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ശ്രീ ഉമേഷ് ജാദവ് പറഞ്ഞു

എൻ സുരക്ഷാ കൌൺസിലിന്റെ വിപുലീകരണമാണ് ഫ്രാൻസിന്റെ പ്രഥമ പരിഗണനയെന്ന് ഫ്രാൻസിന്റെ സ്ഥിരാംഗമായ ഫ്രാങ്കോയിസ് ഡെലാറ്റെർ പറഞ്ഞു ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സ്ഥിരാംഗത്വത്തിനും പിന്തുണ നൽകുമെന്ന് ഫ്രാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്

തെക്കുകിഴക്കൻ മേഖലയിലെ അൽബാമയിലാണ് ടൊർണാഡോ കനത്ത നഷ്ടമുണ്ടാക്കിയത് നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ജോർജിയ ഫ്ളോറിഡ തെക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലും ടൊർണാഡോ ആഞ്ഞടിച്ചു

ബജ്രംഗ് പുനിയയും പൂജ ദണ്ഡയുമാണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണമെഡൽ കരസ്ഥമാക്കിയത്

അമേരിക്കയുടെ ജോർദാൻ ഒലിവറിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്

സ്വർണനേട്ടം ഇന്ത്യയുടെ വീരവൈമാനികൻ അഭിനന്ദ് വർത്തമാന് സമർപ്പിക്കുന്നതായി ശ്രീ

ഹർമൻ പ്രീത് കൌർ കാലിന് പരിക്കേറ്റ് വിശ്രമത്തിലായതിനാൽ സ്മൃതി മന്ദാനയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച മിതാലി രാജും ടീമിലുണ്ട് മുംബൈ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്കായിരുന്നു വിജയം

ആകാശവാണിയുടെ എഫ്

ചർച്ചയിൽ പങ്കെടുക്കുന്നവരുമായി ശ്രോതാക്കൾക്കും സംവദിക്കാം